ലോക കേരള സഭാ അംഗങ്ങളും പ്രധാന പ്രവാസി സംഘടനാ പ്രതിനിധികളുമടങ്ങുന്ന സംഘവുമായി നടത്തിയ ചർച്ചയി ലാണ് മുഖ്യമന്ത്രി ഇക്കാര്യം അഭ്യർത്ഥിച്ചത് സംഘടനകളും സ്ഥാപനങ്ങളും ഒത്തു ചേർന്ന് യജ്ഞം വിജയിപ്പിക്കണമെന്ന് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു ഒരു മാസത്തെ ശമ്പളം നൽകാൻ കഴിയുന്നവർ അങ്ങനെയും അതിന് കഴിയാത്തവർ ആകുംവിധ ത്തിലും സഹകരിക്കണമെന്നും പിണറായി അഭ്യർത്ഥിച്ചു ലോകത്തെ പ്രമുഖ തുറമുഖ മാനേജ്മെന്റ് കമ്പനിയായ ഡി പി വേൾഡു മായി ചേർന്ന് സംസ്ഥാനത്ത് സുപ്രധാന പദ്ധതികൾ ആരംഭിക്കുന്നതിന്റെ ഭാഗ മായി മുഖ്യമന്ത്രി ദുബായിൽ ഡി പി വേൾഡ് അധികൃതരുമായി കൂടിക്കാഴ്ച നട ത്തി കൊച്ചി കേന്ദ്രമായി ലോജിസ്റ്റിക്സ് ആന്റ് ഇൻഡസ്ട്രിയൽ പാർക്ക് വിക സിപ്പിക്കാൻ ഡി പി വേൾഡ് താൽപര്യം അറിയിച്ചു ഇതിനായി സ്ഥലം ഗവൺമെന്റ് ഏറ്റെടുത്തു നൽകും ഇത് കേരളവും യു എ ഇയും തമ്മിലുളള ഗവൺമെന്റ് തല ഉഭയകക്ഷി സംരംഭമായിരിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജ യനും ഡി പി വേൾഡ് ചെയർമാൻ സുൽത്താൻ അഹമ്മദ് ബിൻ സുഖായവും അറിയിച്ചു നാലു ദിവസത്തെ യു എ ഇ സന്ദർശനം പൂർത്തിയാക്കി മുഖ്യമന്ത്രി ഇന്ന് പുലർച്ചെ തിരുവനന്തപുരത്ത് തിരിച്ചെത്തി

മുഖ്യമന്ത്രി പിണറായി വിജയനുമായി ചർച്ച ചെയ്ത ശേഷം സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്യേണ്ട റിപ്പോർട്ട് സംബന്ധിച്ച് ബോർഡ് തീരുമാനമെടുക്കും ഇന്നോ നാളെയോ റിപ്പോർട്ട് സുപ്രീം കോടതിയിൽ സമർപ്പി ക്കാൻ ഇടയുണ്ട് വിവിധ സംഘടനകൾ സമർപ്പിച്ച പുനഃപരിശോധനാ ഹർജി കൾക്കൊപ്പം ദേവസം ബോർഡിന്റെ സ്ഥിതിവിവര റിപ്പോർട്ടും സുപ്രീം കോടതി പരിഗണിച്ചേക്കും സുപ്രീം കോടതി വിധിക്കെതിരെ അഖിലഭാരത അയ്യപ്പസേവാ സംഘം ഇന്ന് പുനഃപരിശോധനാഹർജി നൽകും അയ്യപ്പസേവാസംഘം ദേശീയ പ്രസി ഡന്റ് തെന്നല ബാലകൃഷ്ണപിള്ളയുടെ അധ്യക്ഷതയിൽ തിരുവനന്തപുരത്ത് ചേർന്ന യോഗമാണ് ഈ തീരുമാനമെടുത്തത് ശബരിമലയിലെ ആചാരം സംര ക്ഷിക്കുന്നതിന് തന്ത്രികുടുംബവും പന്തളം കൊട്ടാരവും എടുക്കുന്ന തീരുമാന ങ്ങൾക്ക് പിന്തുണ നൽകാനും യോഗം തീരുമാനിച്ചു ് ് ് ് ് ് തുലാമാസ പൂജകൾ പൂർത്തിയാക്കി ശബരിമല നട ഇന്ന് അടയ്ക്കും പതിവ് പൂജകൾക്കുപുറമെ ഉദയാസ്തമയ പൂജ സഹസ്ര കലശാഭിഷേകം പടി പൂജ എന്നിവയും ഇന്ന് ഉണ്ടാകും

് ഇന്ന് നട അടയ്ക്കാനിരിക്കെ പ്രശ്നങ്ങളുണ്ടാകാൻ സാധ്യതയുണ്ടെന്ന പൊലീസ് വിലയിരുത്തലിനെ തുടർന്ന് ശബരിമലയിൽ സുരക്ഷ ശക്തമാക്കി ഐ ജി ശ്രീജിത്ത് തന്ത്രിയുമായും മേൽശാന്തിമാരുമായും സന്നിധാനത്ത് ചർച്ച നട ത്തി കൂടുതൽ പൊലീസ് സേനയെ ഇന്ന് സന്നിധാനത്തും പരിസരങ്ങളിലും വിന്യസിക്കും

ഇടുക്കി രാജാക്കാട് എച്ച് ആർ റ്റി റ്റി യൂണിയൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ശബരിമല വിധികൊണ്ട് എല്ലാവരും പോയേതീരു വെന്നില്ലെന്നും ആവശ്യക്കാർ മാത്രം പോയാൽ മതിയെന്നും എല്ലാവരും ശബരിമലയ്ക്ക് പോകില്ലെന്നും മന്ത്രി പറഞ്ഞു ് ശബരിമല നട അടയ്ക്കാൻ പന്തളം രാജകുടുംബത്തിന് അധികാരമു ണ്ടെന്ന് പന്തളം കൊട്ടാരം നിർവ്വാഹക സമിതി പ്രസിഡന്റ് ശ്രശികുമാര വർമ്മ പറ ഞ്ഞു ശബരിമല നട അടയ്ക്കാൻ പന്തളം രാജകുടുംബത്തിന് അധികാരമില്ലെന്ന മന്ത്രി എം എം മണിയുടെ പ്രസ്താവനയോട് പന്തളത്ത് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം ഉടമ്പടി പ്രകാരമാണ് ശബരിമലയിലെ കാര്യങ്ങൾ തീരുമാനിക്കാൻ അധി കാരം തങ്ങൾക്ക് ലഭിച്ചതെന്നും അദ്ദേഹം വൃക്തമാക്കി ശബരിമലയിലേക്ക് സ്ത്രീകളെ പ്രവേശിപ്പിക്കണമെന്ന് വാദിക്കുന്നവരുടേത് സ്പോൺസേഡ് സമര മാണെന്നും അദ്ദേഹം പറഞ്ഞു വിശ്വാസികളായ സ്ത്രീകൾ ശബരിമലയിൽ എത്തി ല്ലെന്നും ശശികുമാര വർമ്മ അഭിപ്രായപ്പെട്ടു ജമ്മു കശ്മീരിൽ ഭീകരാക്രമണത്തിൽ നാലു സൈനികർക്ക് വീരമൃ ത്യു

അഞ്ച് ഭീക രരെ സൈന്യം വധിച്ചു രജൌരി ജില്ലയിലെ സുന്ദർബാനി സെക്ടറിൽ നിയന്ത്രണ രേഖ വഴി നുഴഞ്ഞുകയറാൻ ശ്രമിച്ച ഭീകരരെ നേരിടുമ്പോഴാണ് മൂന്ന് സൈനി കർ വീരമൃത്യൂ വരിച്ചത് ഏറ്റു മുട്ടലിൽ രണ്ട് ഭീകരരെ സൈന്യം വധിച്ചു മറ്റൊരു സംഭവത്തിൽ പുൽവാമ ജില്ലയിൽ സി ആർ പി എഫ് ക്യാമ്പിനകത്ത് ഇന്നലെ രാത്രി കുടുംബാംഗങ്ങളുമായി സംസാരിച്ചുകൊണ്ടിരിക്കെ വിജയകുമാർ എന്ന കോൺസ്റ്റബിളിനെ തൊട്ടടുത്ത കുന്നിൻപ്രദേശത്തുനിന്ന് ഭീകരർ വെടിവെച്ച് കൊല പ്പെടുത്തുകയായിരുന്നു കുൽഗാം ജില്ലയിൽ സുരക്ഷാസേനയും ഭീകരരും തമ്മി ൽ ഏറ്റുമുട്ടലിനെ തുടർന്നുണ്ടായ സ്ഫോടനത്തിലാണ് ഏഴ് നാട്ടുകാർ കൊല്ലപ്പെ ട്ടത് ഏറ്റുമുട്ടലിൽ മൂന്നു ഭീകരരെ സൈന്യം വധിച്ചിരുന്നു ഭീകരർ കൊല്ലപ്പെട്ട ശേഷം പ്രദേശത്തെത്തിയ നാട്ടുകാരാണ് സ്ഫോടനത്തിൽ മരിച്ചത് ഭീകരരുടെ പക്കലുണ്ടായിരുന്ന ഷെല്ലുകളും ഗ്രനേഡുകളും പൊട്ടിത്തെറിച്ചതാണ് നാട്ടുകാ രുടെ മരണത്തിനിടയാക്കിയത് ് ് ് ് ് ് ് ് സി ബി ഐ സ്പെഷ്യൽ ഡയറക്ടർ രാകേഷ് അസ്താനയ്ക്കെതിരെ അഴിമതി നിരോധന നിയമപ്രകാരം കേസെടുത്തു അസ്താന അന്വേഷിക്കുന്ന കള്ളപ്പണക്കേസിൽ കുറ്റക്കാരനായ മാംസ വ്യാപാരിയായ മോയിൻ ഖുറേഷിയിൽ നിന്ന് കൈക്കൂലി വാങ്ങിയെന്നാരോപിച്ചാണ് സി ബി ഐയിൽ രണ്ടാം സ്ഥാനക്കാര നായ അസ്താനയ്ക്കെതിരെ കേസെടുത്തത് കള്ളപ്പണക്കേസിൽ പേരു പരാ മർശിക്കാതിരിക്കാൻ കൈക്കൂലി വാങ്ങിയെന്നാണ് ആരോപണം ഇദ്ദേഹത്തിനെ തിരെ അന്വേഷണം ആരംഭിക്കുന്നതിന് ഗവൺ മെന്റിന്റെ മുൻകൂർ അനുമതി നില വിലെ നിയമപ്രകാരം ആവശ്യമാണെന്ന് സി ബി ഐ അറിയിച്ചു ഗുജറാത്ത് കേഡർ ഐ പി എസ് ഓഫീസറാണ് അസ്താന അസ്താനയ്ക്കെതിരായ കേസുമായി ബന്ധപ്പെട്ട എല്ലാകാര്യങ്ങളും വെളിപ്പെടുത്തണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടു അന്വേഷണത്തിൽ ഗവൺമെന്റ് ഇടപെടരുതെന്നും കോൺഗ്രസ് വക്താവ് അഭിഷേക് സിംഗ്വി ന്യൂഡൽഹിയിൽ പറഞ്ഞു

കേന്ദ്ര പരി സ്ഥിതി മന്ത്രി ഡോക്ടർ ഹർഷ് വർദ്ധൻ ഉദ്ഘാടന ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കും കേന്ദ്ര പരിസ്ഥിതി വനം കാലാവസ്ഥാ വൃതിയാന മന്ത്രാലയത്തിന്റെ കീഴിലെ സുവോളജിക്കൽ സർവ്വെ ഓഫ് ഇന്ത്യയുടെ സഹായത്തോടെ ലക്ഷദ്ധീപ് കാലാവസ്ഥാ വനംവകുപ്പാണ് മൂന്നു ദിവസത്തെ സമ്മേളനം സംഘടിപ്പിക്കുന്ന ത് ദ്വീപുകളുടെ നിലനിൽപിന് പവിഴപ്പുറ്റുകളുടെ സംരക്ഷണത്തിനായി നയങ്ങളും മാർഗ്ഗങ്ങളും ആവിഷ്കരിക്കുക എന്നതാണ് സമ്മേളനപ്രമേയം

് ് ് ് ് ് ് ് ഗുവാഹട്ടിയിൽ വെസ്റ്റിൻഡീസിനെതിരായ ആദ്യ ഏകദിനത്തിൽ ഇന്ത്യക്ക് എട്ടു വിക്കറ്റിന്റെ തകർപ്പൻ ജയം

ഓപ്പണർ രോഹിതും ക്യാപ്റ്റൻ വിരാട് കൊഹ്ലിയും നേടിയ സെഞ്ചുറി യാണ് ഇന്ത്യക്ക് അനായാസ വിജയം നേടിക്കൊടുത്തത് രണ്ടാം ഏകദിനം മറ്റ ന്നാൾ വിശാഖപട്ടണത്ത് നടക്കും ് ് ് ് ് ് ് ് ഐ എസ് എൽ ഫുട്ബോളിൽ ജംഷഡ്പൂർ എഫ് സിയും എ ടി കെയും തമ്മിലെ മത്സരം ഇരുടീമുകളും ഓരോ ഗോളടിച്ച് സമനിലയിൽ പിരി ഞ്ഞു ജംഷഡ്പൂരിൽ മത്സരത്തിന്റെ ആദ്യപകുതിയിലാണ് ഇരുഗോളുകളും പിറന്നത് ഇതോടെ മൂന്നു മത്സരങ്ങളിൽ നിന്ന് അഞ്ചുപോയിന്റ് ലഭിച്ച ജംഷ ഡ്പൂർ എഫ് സി കേരള ബ്ലാസ്റ്റേഴ്സിനെ പിന്തള്ളി പോയന്റ് പട്ടികയിൽ രണ്ടാമ തെത്തി ഇന്ന് പൂനെ സിറ്റി ബംഗളുരു എഫ് സിയെ നേരിടും

ഫൈനലിൽ മലപ്പുറമായിരുന്നു കോഴിക്കോ ടിന്റെ എതിരാളികൾ വയനാടിനെയാണ് തിരുവനന്തപുരം പരാജയപ്പെടുത്തിയ ത് ് ് ് ് ് ് തിരൂർ നിറമരുതൂർ ഗവൺമെന്റ് ഹയർ സെക്കന്ററി സ്കൂളിൽ രണ്ടു ദിവസമായി നടന്ന സംസ്ഥാന ഖൊ ഖൊ ചാമ്പ്യൻഷിപ്പിൽ പുരുഷവിഭാഗത്തിൽ മലപ്പുറവും വനിതാവിഭാഗത്തിൽ പാലക്കാടും ജേതാക്കളായി പുരുഷവിഭാഗം ഫൈനലിൽ കോഴിക്കോടിനെയാണ് മലപ്പുറം തോല്പിച്ചത് വനിതാവിഭാഗത്തിൽ പാലക്കാട് തിരുവനന്തപുരത്തെ പരാജയപ്പെടുത്തി ആലപ്പുഴ റവന്യൂ ജില്ലാ സ്കൂൾ കായികമേളയിൽ ആലപ്പുഴ ഉപജില്ല ജേതാക്കളായി സ്കൂൾ തലത്തിൽ ആലപ്പുഴ ലിയോ തേട്ടീൻത് സ്കൂളിനാണ് ഒന്നാം സ്ഥാനം പ്രളയ പശ്ചാത്തലത്തിൽ ചടങ്ങുകൾ ഒഴിവാക്കിയാണ് മേള നട ത്തിയത് കോഴിക്കോട് റവന്യൂ ജില്ലാ സ്കൂൾ കായികമേള ഇന്ന് സമാപിക്കും

പ്രളയദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ഉദ്ഘാടന സമാപന ചട ങ്ങുകൾ ഒഴിവാക്കിയിട്ടുണ്ട്

മീറ്റ് നാളെ സമാപിക്കും പ്രസിദ്ധമായ മാഹി സെന്റ് തെരേസാ ദേവാലയത്തിലെ തിരുനാൾ ആഘോഷം ഇന്ന് സമാപിക്കും രാവിലെ വരാപ്പുഴ അതിരൂപത മെത്രാപ്പൊലീത്ത ഡോക്ടർ ജോസഫ് കളത്തിപറമ്പിലിന്റെ മുഖ്യകാർമ്മികത്വത്തിൽ ദിവ്യബലി നട ക്കും കൊല്പം ഏരൂരിൽ ഇടിമിന്നലേറ്റ് വീട്ടമ്മ മരിച്ചു

സംസ്ഥാനത്ത് രണ്ടു ദിവസം കൂടി പർക്കെ മുഴ പെയ്യാൻ സാധ്യതയു ണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണകേന്ദ്രം തിരുവനന്തപുരത്ത് അറിയിച്ചു നാളെ വരെ ചില സ്ഥലങ്ങളിൽ ശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ട് അതിനുശേഷം തുലാവർഷത്തിന്റെ വരവുവരെ മഴ കുറഞ്ഞേക്കുമെന്നും നിരീക്ഷണകേന്ദ്രം അറി യിച്ചു

പൊതുവിദ്യാലയങ്ങൾ മികവിന്റെ കേന്ദ്രങ്ങളാക്കുന്നതിന്റെ ഭാഗമായി സംസ്ഥാനത്തെ സ്കൂളുകളിൽ ഹൈടെക് സ്കൂൾ പദ്ധതിയിൽ ലഭ്യമാക്കിയ ഉപക രണങ്ങളുടെയും സൌകര്യങ്ങളുടെയും ഉപയോഗം പരിശോധിക്കുന്നതിന് പ്രത്യേക ഓഡിറ്റ് ഇന്ന് ആരംഭിക്കും ക്ലാസ്റൂം വിനിമയത്തിനായി തയാറാക്കിയ സമഗ്ര പോർട്ടലിന്റെ ഉപയോഗവും പ്രയോഗവും സ്കൂളുകളിലെ ബ്രോഡ്ബാന്റ് ഉപ യോഗം ഉപകരണങ്ങൾ സ്ഥാപിച്ചതും അതിന്റെ പ്രവർത്തനവും പരാതി പരിഹാര സംവിധാനവും സമ്പൂർണ്ണ സ്പാർക്ക് അപ്ഡേഷൻ തുടങ്ങിയവയാണ് ഓഡി റ്റിന്റെ ഭാഗമായി കേരള ഇൻഫ്രാസ്ട്രക്ചർ ആന്റ് ടെക്നോളജി ഫോർ എഡ്യൂ ക്കേഷൻ കൈറ്റ് ശേഖരിക്കുന്നത്